മത്സ്യ ത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമ ചന്ദ്രൻ

എൽ ഫുട്ബോളിൽ എഫ് സി ഗോവയ്ക്ക് തകർപ്പൻ ജയം

ഇതിന്റെ ഫലമായി ഇന്നും നാളെയും മറ്റന്നാളും കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്കും ചിലയിടങ്ങ ളിൽ കനത്ത മഴയ്ക്കും സാധൃതയുണ്ട്

പിന്നീട് വേഗം വർധിക്കും ക ടൽ പ്രക്ഷുബ്ധമാവാനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോക രുതെന്നും നിർദേശിച്ചിട്ടുണ്ട് അതേസമയം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു ഈ ജില്ലകളിൽ കനത്തമഴ പ്രവചിക്കുന്ന ഓറഞ്ച് അലർട്ട് നില നിൽക്കും വയനാട് മലപ്പുറം പാലക്കാട് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ മലപ്പുറം പാലക്കാട് ഇടുക്കി ജില്ല കളിൽ അതിശക്തമായ മഴയുണ്ടാവും തുടർച്ചയായ ദിവസങ്ങളിൽ മഴ പ്രവചിച്ച സാഹചര്യത്തിൽ നേരത്തെ പുറപ്പെടുവിച്ച എല്ലാ മുന്നൊരുക്ക നിർദേശങ്ങളും തുട രാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദേശം നൽകി ഇടുക്കി അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ ദുർബലമായി

മാട്ടുപ്പെട്ടി കല്ലാർകുട്ടി പൊന്മുടി മലങ്കര അണക്കെട്ടുകളുടെയും ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നു ണ്ട് കോഴിക്കോട് ജില്ലയിലെ തീരദേശ മലയോര മേഖലകളിലെ വില്ലേജ് ഓഫീസു കൾ ഇന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ നടപ്പ് സാമ്പത്തിക വർഷം അംഗീകാരം ലഭിച്ച പദ്ധതികളുടെ വിഹിതം കുറയ്ക്കാനും പുനർനിർണയിക്കുന്നതിനും സംസ്ഥാന ധനകാര്യ വകുപ്പ് നിർദേശം നൽകി

ഏതെല്ലാം പദ്ധതികളാണ് പൂർണമായോ ഭാഗികമായോ നിറുത്തലാക്കേണ്ടതെന്ന് ബന്ധപ്പെട്ട വകുപ്പ് പരിശോധിച്ച് കണ്ടെത്തണം

കാർഷിക മേഖലയിലെ ആഗോള മത്സരം നേരിടാൻ കർഷകരെ സജ്ജരാക്കേണ്ട തുണ്ടെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യ ലബ്ധി യോടനുബന്ധിച്ച് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ സിംഹഭാഗവും കാർഷിക മേഖലയിൽ നിന്നായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു

ഐയിൽ ഇന്നൊവേറ്റീവ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ വ്യാപ്തികുറഞ്ഞെങ്കിലും ഉൽപാ ദന ക്ഷമത കൂടിയിട്ടുണ്ടെന്ന് ഗവർണർ പറഞ്ഞു സംസ്ഥാനത്തെ ഓട്ടോമാറ്റിക് വാഹന പരിശോധനാ കേന്ദ്രങ്ങൾ ശക്തമാക്കു മെന്ന് മന്ത്രി എ

നാല് സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക് വാഹ നപരിശോധനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ മാസം രണ്ട് കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റോഡുകളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു

മന്ത്രി ടി പി രാമകൃ ഷ്ണൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ജനമനസ്സുകളിലാണ് കോടതികളും നൃായാധിപന്മാരും നിയമജ്ഞരും വാഴേണ്ട തെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു കോടതികൾ പുറപ്പെടുവിക്കുന്ന ഭരണഘട നാപരവും ജനാധിപത്യപരവുമായ വിധികൾക്ക് എതിരെ ചാനലുകളിലും തെരുവു കളിലും വർഗീയതയുടെ വിഷം വമിക്കുന്ന കോലാഹലങ്ങൾ നടത്തുന്നത് ജനകീ യതയുടെ രാഷ്ട്രീയമല്ലെന്നും അത് അപകടകരമായ ആൾക്കൂട്ടത്തിന്റെ രാഷ്ട്രീയമാ ണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാസർകോട് സബ്കോടതികളുടെ വജ്രജൂബി ലി ആഘോഷങ്ങളുടെ സമാപന യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരു ന്നു മന്ത്രി സംഘഷർഷങ്ങൾ സൃഷ്ടിച്ച് ശബരിമലയെ മറ്റൊരു അയോധ്യയാക്കാൻ നടത്തുന്ന നീക്കം അനുദിക്കില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ശബരിമല പ്രശ്നവത്കരിച്ച് ഗുണമുണ്ടാക്കാനാണ് സ്ഥാപിതതാത്പര്യക്കാർ ശ്രമിക്കുന്നത് ഇതുകൊണ്ടാണ് വിഷയം കൂടുതൽ വിവാദമാക്കരുതെന്ന് പറയുന്നതെന്നും മുല്ലപ്പള്ളി കോഴിക്കോട് പ്രസ് ക്ലബിൽ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പറഞ്ഞു ശബരിമല സത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധി സംബന്ധിച്ച് അഭിപ്രായ ഐക്യമുണ്ടാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കേണ്ടത് ശബരിമല വിഷയത്തിൽ ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു

പുതിയ കെപിസിസി ഭാരവാഹികൾക്ക് കോഴിക്കോട്ട് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഗവൺമെന്റ് ആവശ്യമായ പഠനങ്ങൾ നടത്താതെ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രശ് നങ്ങൾക്ക് വഴിവെക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു ഗവൺമെന്റ് ആരുടെയും വിശ്വാസങ്ങൾക്ക് എതിരല്ലെന്നും എന്നാൽ അതിന്റെ പേരിൽ നടക്കുന്ന ചൂഷണം അനുവദിക്കില്ലെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറ ഞ്ഞു പത്തനംതിട്ട പറക്കോട്ട് സർവീസ് ബാങ്കിന്റെ എന്റെ ബാങ്ക് പദ്ധതി ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശബരിമലയുടെ പേരിൽ സംസ്ഥാനത്ത് ഇപ്പോൾ തർക്കങ്ങൾ നടക്കുകയാണ് വിശ്വാസം ഉള്ളവർക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്താനും അവിടേയ്ക്ക് പോകാനും അവകാശമുണ്ടെന്നും മേഴ്സിക്കുട്ടിയമ്മ പറ ഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ ബി

പി ആഹ്വാനം ചെയ്ത പകൽ ഹർത്താൽ ആരം ഭിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ആറന്മുളയിലെ വസതി യിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തി ചാർജിൽ പ്രതി ഷേധിച്ചാണ് ഹർത്താൽ വൈകീട്ട് ആറ് വരെ നടക്കുന്ന ഹർത്താലിൽ നിന്ന് അവ ശ്യസർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്

എൽ ഫുട്ബോളിൽ എഫ് സി ഗോവയ്ക്ക് തകർപ്പൻജയം ചെന്നൈ യിൽ നടന്ന മത്സരത്തിൽ നിലവിൽ ജേതാക്കളായ ചെന്നൈയിൻ എഫ് സിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഗോവ തോൽപിച്ചത് ഇതോടെ രണ്ട് മത്സര ങ്ങളിൽ നിന്ന് നാല് പോയിന്റുമായി ഗോവ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി കേരള ബ്ലാസ്റ്റേഴ്സാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ന് ബംഗുളൂരു എഫ് സി ജംഷഡ്പൂ രിനെ നേരിടും

ഗോൾഡൻഗ്ലോബ് പായ് വഞ്ചി മത്സരത്തിനിടെ അപകടത്തിൽ പരിക്കേറ്റ മലയാളി നാവികൻ കമാൻഡർ അഭിലാഷ് ടോമിയെ വിശാഖപട്ടണത്ത് നാവികസേനാ ആശു പത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഐ

സൈബർ സുരക്ഷാ രംഗത്തെ പുത്തൻ ആശയങ്ങൾ പങ്കുവെച്ച് അന്താരാഷ്ട്ര കൊക്കൂൺ പതിനൊന്നാം പതിപ്പ് കൊച്ചിയിൽ സമാപിച്ചു സമാപന സമ്മേളനം ചീഫ് സെക്രട്ടറി ടോംജോസ് ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലഘട്ടത്തിൽ നിർമിത ബുദ്ധിയുടെയും റോബോട്ടിന്റെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു റേഷൻ കടകളുടെ പ്രവർത്തനസമയം പുനക്രമീകരിച്ചതായ വാർത്തകൾ അടി സ്ഥാന രഹിതമാണെന്ന് സിവിൽ സപ്പൈസ് ഡയറക്ടർ തിരുവനന്തപുരത്ത് അറി യിച്ചു ഇത്തരത്തിൽ യാതൊരു തീരുമാനവും പൊതുവിതരണ വകുപ്പോ ഗവൺമെന്റോ കൈക്കൊണ്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞമാസത്തെ റേഷൻ വിതരണം ചെയ്യുന്ന തിയ്യതി ഈ മാസം പത്തു വരെ നീട്ടി വിദ്യാർഥികൾ പഠനത്തോടൊപ്പം എങ്ങനെ നന്നായി പെരുമാറാം എന്നുകൂടി പഠി ക്കണമെന്ന് മന്ത്രി ഡോ

ടി ജലീൽ പറഞ്ഞു ന്യൂനപക്ഷ ക്ഷേമവകുപ്പിന്റെ ആഭി മുഖ്യത്തിൽ വിദ്യാർഥികൾക്കായി ദ്വിദ്വിന കരിയർ പഠന പ്രചോദന വ്യക്തിത്വ വികസന സഹവാസ കൃാംപ് പാസ്വേഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിലമ്പൂ രിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പ്രളയത്തിൽ നിന്ന് കരകയറുന്നതിന് ഒരു മാസത്തെ ശമ്പളം നൽകാൻപോലും തയാറാവാത്ത അധ്യാപകരുടെ നടപടി ഖേദകരമാണെന്നും മന്ത്രി പറഞ്ഞു

സ്കൂൾ വാഹനങ്ങളിൽ ജി

എസ് സംവിധാനം ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിലെ നോഡൽ ഓഫീസർമാർക്ക് കൊല്ലത്ത് പരിശീലന പരിപാടി സം ഘടിപ്പിച്ചു

എസ് സംവിധാനം ഘടിപ്പിക്കണമെന്നാ ണ് നിർദേശം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണം സാധാരണക്കാരന് വേണ്ടി അല്ലെന്നും അച്ഛാദിൻ സംഭാവന ചെയ്തത് വൻകിടക്കാർക്കാണെന്നും മന്ത്രി കെ രാജു പറഞ്ഞു

ഐ കാൽനട പ്രചാരണ ജാഥയുടെ സമാപന സമ്മേളനം പത്തനംതിട്ട റാന്നിയിൽ ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പതിറ്റാണ്ടുകൾ എത്ര പിന്നിട്ടാലും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും സ് മൃതികളിൽ നിന്ന് മാഞ്ഞുപോകാത്ത ചിത്രമാണ് സിഎച്ച് മുഹമ്മദ് കോയയുടെ തെന്ന് മുസ്തിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പ റഞ്ഞു മുസ്സിം ലീഗ് കാസർകോട് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച സിഎ ച്ച് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം ശബരിമലയിലെ സ്ത്രീ പ്രവേശനം വിവാഹേതര ലൈംഗിക ബന്ധം ഇസ്ലാമി ന് മസ്ജിദ് അനിവാര്യമല്ല തുടങ്ങിയ വിധികളിലേക്ക് സുപ്രിം കോടതിയെ നയിച്ച തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നിസ്സംഗതക്ക് വലിയ പങ്കുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും ഇടുക്കി ജില്ലയിലേക്ക് കൊണ്ട് വരുന്ന പാലിന്റെ പരിശോ ധന അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കൃത്യമായ ഇടവേളകളിൽ കർശനമാക്കാൻ ഭക്ഷ്യാപദേശക സമിതി തീരുമാനിച്ചു മണ്ഡലകാലം ഉൾപെടുന്ന ഉത്സവ സീസ ണുകളിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും വഴിയോരക്കടകളിലും പോലീസ് ലീഗൽ മെട്രോളജി ഫുഡ് സേഫ്റ്റി സിവിൽ സപ്ലൈസ് തുടങ്ങി വകുപ്പുകൾ സംയുക്ത മായി പരിശോധനകൾ നടത്തും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായ നടൻ ദിലീപിനെതിരായ നടപടി അമ്മ എക്സിക്യൂട്ടീവിന് എടുക്കാനാവില്ലെന്ന് പ്രസിഡന്റ് നടൻ മോഹൻലാൽ പറഞ്ഞു ജനറൽ ബോഡിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേ ണ്ടതെന്ന് നടപടി ആവശ്യപ്പെട്ട് കത്തു നൽകിയ നടിമാരായ രേവതി പാർവതി പത്മപ്രിയ എന്നിവരെ ഔദ്യോഗികമായി അറിയിക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു

സി നൽകിയ കത്തിനെ തുടർന്നാ ണ് സംഘടന യോഗം ചേർന്നത്

പി പ്രവർത്തകൻ കണ്ണൂർ കണ്ണവത്തെ ശ്യാമപ്രസാദ് വധക്കേസിൽപെട്ട ഏഴ് പേർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കേസിൽപെട്ട ആറ് പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു